സംസ്ഥാനത്തെ തീർത്ഥക്കടവുകളിലും ക്ഷേത്ര ങ്ങളിലും പിതൃതർപ്പണം ആരംഭിച്ചു

മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചീഫ് സെക്രട്ടറി ടോം ജോസ് ഡിജിപി ലോക്നാഥ് ബഹ്റ തു ടങ്ങിയവർ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടാകും രാവിലെ തിരുവനന്തപുരത്ത് നി ന്ന് പുറപ്പെടുന്ന സംഘം എട്ടരയോടെ കട്ടപ്പനയിലെത്തും തുടർന്ന് ഇടുക്കി ജില്ലയിലെ ദുരന്ത നിവാരണ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ അവർ അവ ലോകനം ചെയ്യും കട്ടപ്പന ഗവൺമെന്റ് കോളജിൽ ചേരുന്ന അവലോകന യോഗത്തിൽ മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ എം എം മണി കെ രാജു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചീഫ് സെക്രട്ടറി റവന്യൂ അഡീഷ ണൽ ചീഫ് സെക്രട്ടറി ഡി ജി പി ജില്ലയിലെ ജനപ്രതിനിധികൾ തുടങ്ങിയ വർ പങ്കെടുക്കും ഉരുൾപൊട്ടൽ മഴക്കെടുതി എന്നിവയ്ക്ക് പുറമെ ഇടുക്കി ഡാം തുറന്ന ശേഷമുണ്ടായ സാഹചര്യങ്ങളും അവലോകന യോഗം വില യിരുത്തും

സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങുന്ന മുഖ്യമന്ത്രി ജില്ലയിലെ ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും പിന്നീട് കോഴിക്കോട് മലപ്പുറം ജില്ല കളിലും മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തും

ബലിതർപ്പണം നടക്കു ന്ന ആലുവയിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തും രദ്ദേഷ്ടങ സംസ്ഥാനത്തെ പ്രളയബാധിത പ്രദേശങ്ങൾ നേരിൽ കാണാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കേരളത്തിലെത്തും

കൊച്ചിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ഇരുവരും സ്ഥിതിഗതികൾ വില യിരുത്തും

കെ ആന്റണിയുടെ നേതൃത്വത്തിൽ എംപിമാർ അടങ്ങിയ സർ വകക്ഷി സംഘം ഇന്നലെ മന്ത്രിയെ നേരിൽ കണ്ട് സ്ഥിതിഗതികൾ ബോധ്യ പ്പെടുത്തിയിരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംഘം ആ വശ്യപ്പെട്ടു ചർച്ചക്ക് പിന്നാലെ ആഭ്യന്തര മന്ത്രി കേരളത്തിൽ നേരിട്ടെത്തു മെന്ന് അറിയിക്കുകയായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാജ്നാഥ് സിംഗ് മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തും ദർവ്വെടെ ഒര ഇടുക്കി അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നതോടെ ഡാമിലെ ജല നിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞു ഇന്നലെ വൈകീട്ട് അഞ്ച് ഷട്ടറുകളും ഒരു മീറ്റർ വരെ ഉയർത്തി വെള്ളം തുറന്നുവിട്ടിരിക്കുകയാണ്

ഇനിയും കൂടുതൽ വെള്ളം ഒഴുക്കിവിടേണ്ടി വന്നാൽ ഇടമലയാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാനും ആലോചനയുണ്ട് അങ്കമാ ലി കാലടി ജനവാസ മേഖലയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചരൃത്തിലാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്

കാലവർഷക്കെടുതിയിൽ ദുരിതം നേരിടുന്ന വർക്കായി ഏഴ് ക്യാമ്പുകൾ ഇടുക്കി താലൂക്കിൽ തുറന്നിട്ടുണ്ട്

തമിഴ്നാട് പരമാവധി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്

ചന്ദ്രശേഖരൻ പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ നിലമ്പൂർ മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വീട് പൂർണ്ണ മായും നഷ്ടപ്പെട്ടവർക്ക് നാലുലക്ഷം രൂപവരെ നഷ്ടപരിഹാരവും ഭാഗിക നഷ്ടം സംഭവിച്ചവർക്ക് ഒരുലക്ഷം രൂപയും നൽകും ഭൂമി നഷ്ടമായവർക്ക് പകരം സ്ഥലവും നൽകുമെന്ന് മന്ത്രി അറിയിച്ചു ദുരിതാശ്ചാസ ക്യാമ്പു കൾ കല്കടർമാർ നേരിട്ട് നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രനും ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിച്ചു കാലവർഷക്കെ ടുതിയുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിൽ നടപ്പാക്കിയതുപോലെ പദ്ധതികൾ നില മ്പൂരിലും നടപ്പാക്കുമെന്ന് മന്ത്രി എ

കെ ബാലൻ ഇന്ന് സന്ദർശനം നടത്തും തുടർന്ന് കലക്ടറേറ്റിൽ അവലോകന യോഗവും ചേരുന്നുണ്ട് വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചുതുടങ്ങി

രദ്ദേഷ്ടങ വടക്കഞ്ചേരി മണ്ണുത്തി ആറുവരിപ്പാതയിലെ കുതിരാൻ തുരങ്ക മുഖങ്ങ ളിൽ വീണ്ടും മണ്ണിടിഞ്ഞു ഇരുമ്പുപാലത്തിന് സമീപമാണ് മണ്ണും പാറക്ക ഷണങ്ങളും മരങ്ങളും നിലം പതിച്ചത് കുതിരാൻ പഴയപാതയിൽ ഗതാഗത ക്കുരുക്ക് രൂക്ഷമായതോടെ ഇന്നുമുതൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു

ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന കടപ്പാറ കുഞ്ചിയാർപതി കരിങ്കയം തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി

അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുകയാണ് കുരുമ്പൻമൂഴി മണക്കയം പ്രദേശങ്ങൾ പൂർണ്ണ മായും ഒറ്റപ്പെട്ടു അരയാഞ്ഞിലിമൺ കുരുമ്പൻമൂഴി ക്രോസ്വെകൾ വെള്ള ത്തിൽ മുങ്ങിയതോടെ പ്രദേശവാസികൾക്ക് പുറംലോകത്ത് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ്

രുട്ടിട്ട്ട്ട്ട്ട്ട്ട കാലവർഷക്കെടുതി വിലയിരുത്താൻ എത്തുന്ന കേന്ദ്രസംഘം കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളും സന്ദർശിക്കണമെന്ന് കെ സി ജോസഫ് എം

നാലുപേരെ കാണാതിയിട്ടുണ്ട്

മനുഷ്യജീവനും സ്ഥത്തിനും കഴിഞ്ഞ കുറച്ചുദിവസങ്ങളിൽ ഭീമമായ നഷ്ടമുണ്ടായതായി അദ്ദേഹം പറ ഞ്ഞു

പിതൃമോക്ഷത്തിന് ബലിതർപ്പ ണത്തിന്റെ ദിവസം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തീർത്ഥക്കടവുകളിൽ നൂറു കണക്കിനാളുകൾ ബലിതർപ്പണം തുടങ്ങിക്കഴിഞ്ഞു ദർവ്വെട്ടറ ഡാമുകൾ തുറന്നതുമൂലം പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ആലുവായിൽ കർക്കിടക വാവുബലിക്ക് എത്തുന്നവർക്ക് എറണാകുളം ജില്ലാ ഭരണകൂടം അതീവ സുരക്ഷയൊരുക്കി ആലുവ മണപ്പുറം വെള്ള ത്തിൽ പൂർണ്ണമായി മൂടിക്കിടക്കുന്നതിനാൽ ബലിതർപ്പണത്തിന് എത്തുന്ന വർക്ക് ബാരിക്കേഡുകൾ കെട്ടി പുഴയിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെ ടുത്തി

കോസ്റ്ഗാർഡ് ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ സുരക്ഷ ഉറപ്പാ ക്കാൻ രംഗത്തുണ്ട് മറ്റ് ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജാഗ്രത പുലർത്തു ന്നുണ്ട്

അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ഇംഗ്ലണ്ടിന്റെ ജെയിംസ് ആൻഡേഴ്സനാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നടുവൊടിച്ചത് മഴ വില്ലനായ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായ മൂന്നാം തവണയും കോഴിക്കോട് ചാമ്പ്യൻമാരായത്

ഓൾ ഇന്ത്യ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അസോസിയേഷനാണ് മൂന്നാം എം

പി സുരക്ഷാ അല്വൻസ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്ന യിച്ച് സത്യഗ്രഹം നടത്തുന്നത്

ചെയർപേഴ്സണായി വി പി അമ്പിളിയെയും ജനറൽ സെക്രട്ടറിയായി ഇ കെ ദൃശ്യയെയും തെരഞ്ഞെടുത്തു

ജൂബിലി ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

കണ്ണൂർ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സും എറണാകുളം നിലമ്പൂർ എറണാകുളം പാസഞ്ചറുമാണ് റദ്ദാ ക്കിയത്